കോവിഡിന്റെ പശ്ചാത്തലത്തിലുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു

ജമ്മു കാശ്മീലെ ബാരാമുള്ളയിൽ ഭീകരാക്രമണത്തിൽ രണ്ട് സി ആർ പി എഫ് ജവാൻമാർക്കും ഒരു പോലീസുകാരനും ഉൾപ്പെട െ പേർക്ക് വീരമൃത്യു

പരിശോധനയിലൂടെ പോസിറ്റീവ് കേസുകൾ കുറയ്ക്കാൻ മാത്രമല്ല മരണനിരക്കും കുറയ്ക്കാൻ കഴിഞ്ഞതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രോഗബാധ നേരത്തേ കണ്ടെത്തുന്നതിനും നടപടികൾ വേഗത്തിൽ ആരംഭിക്കുവാനും ചികിത്സ ഇതിലൂടെ സാധിച്ചതായി മന്ത്രാലയം അഭിപ്രായപ്പെട്ടു

രാജ്യത്ത് നിലവിൽ മൂന്ന് വാക ്സിനുകളാണ് പരീക്ഷണിത്തിന്റെ വിവിധഘട്ടങ്ങളിൽ ഉള്ളത് അവ വിജയകരമായി പുറത്തിറ്ക്കാൻ ശാസ്ത്രജ്ഞർ കഠിന പരിശ്രമം നടത്തി കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി സ്വാതന്ത്രൃ ദിനത്തിൽ പ്രഖ്യാപിച്ച ദേശീയ ഡിജിറ്റൽ ആരോഗ്യ മിഷൻ നാഴികക്കല്ലാകുമെന്നും കേന്ദ്രസഹമന്ത്രി പറഞ്ഞു

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം

അവസാനവട്ട പരിശോധനകൾക്കായി മാസം മൂന്നാം വാരത്തോടെ എല്ലാ തയ്യാറെടുപ്പുകളും ഈ പൂർത്തീകരിക്കണമെന്ന് ശ്രീ നായിഡു നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൺസൂൺ സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി രാജ്യസഭാ സെക്രട്ടറിയേറ്റ് കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി നിരവധി നടപടികളാണ് സ്വീകരിച്ചുവരുന്നത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

കോവിഡ് രോഗവ്യാപനം തടയുന്നതിനും ആരോഗ്യ പ്രവർത്തകർക്ക് രോഗികളുടെ വ്യാപകമായി നിരീക്ഷിക്കുന്നതിനും സമ്പർക്കം ഇതിലൂടെ സാധിക്കുമെന്ന് സർക്കാരിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു

ജമ്മുകാശ്മീരിലെ ഓരോ ജില്ലയിലായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഫോർ ജി സേവനം ലഭ്യമാക്കാൻ പദ്ധതിയിടുന്നതായി കേന്ദ്രസർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു

ശബരിമലയിൽ ചിങ്ങമാസ പൂജകൾക്ക് ഇന്ന് പൂലർച്ചെ തുടക്കമായി ഇന്നലെ വൈകിട്ട് നട തുറന്നിരുന്നു കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ മാസവും ഭക്തർക്ക് സന്നിധാനത്ത് ദർശനം അനുവദിച്ചിട്ടില്ല

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാൻ തുടങ്ങിയവർ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ആശംസകൾ നേർന്നു

കോഴിക്കോട് ജില്ലയിൽ മൂന്നു പേരും എറണാകുളം ജില്ലയിൽ രണ്ടു പേരുമാണ് മരിച്ചത് ഇവരുടെ മരണകാരണം കോവിഡ് മൂലമാണോയെന്ന് സ്ഥിരീകരിക്കുന്നതിനായി സ്രവം ആലപ്പുഴ എൻ

ഐ വിയിൽ നിന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്

കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ ലോകത്ത് മൂന്നാം സ്ഥാനത്താണ്

ജില്ലയിലെ ക്രീരി മേഖലയിൽ ഇന്ന് രാവിലെ സിആർപിഎഫും ജമ്മു കാശ്മീർ പൊലീസും നടത്തിയ സംയുക്ത തിരച്ചിലിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ഭീകരർക്കയി സുരക്ഷാസേന തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്

ഇ കൊമേഴ്സ് ആപ്തിക്കേഷൻ ആയ ആലിബാബ അമേരിക്കയിൽ നിരോധിക്കും എന്നാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയത് ടിക്ക് ടോക്കിന്റെ മാതൃ കമ്പനിയായ ബൈറ്റ് ഡാൻസ് അമേരിക്കയുടെ ദേശീയ സ്പൂരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റ് ് തനിക്ക് തെളിവുകൾ ലഭിച്ചതായി ഡൊണാൾഡ് ട്രംപ് ഉവളിപ്പെടുത്തിയിരുന്നു

മുംബൈ റായിഗഡ് പൽഗർ എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഉത്തരേന്ത്യുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ ശക്തമായ മഴ ലഭിച്ചിരുന്നു ഒഡീഷയുടെ വിവിധഭാഗങ്ങളിലും കാറ്റിനും സാധ്യതയുണ്ട്